സഹായക സംഘങ്ങൾ മഹത്തായ പ്രവർത്തനം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജോബ് മാതൃു കൊല്ലത്ത് ക്രൈംബ്രാഞ്ചിനു മുന്നിൽ കീഴടങ്ങി അഭിമന്യൂ വധക്കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ

വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ആദ്യ മത്സരം ഇന്ന്

തൊഴിലാളികൾക്കും വേണ്ടിയാണ് അവർ യത്നിക്കുന്നതെന്നും ശ്രീ

വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തുള്ള സ്വയംസഹായക സംഘ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പാവപ്പെട്ടവരുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി ഇത്തരം സംഘങ്ങൾ വഴിതെളിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇന്നലെ ഫാദർ ജോബ് മാത്യു ഉൾപ്പെടെ മൂന്ന് ഓർത്ത്ഡ്രോക്സ് സഭാ വൈദികരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്ക്ട്ടെതി തള്ളിയിരുന്നു ഒളിവിലുള്ള മറ്റ് പ്രതികളായ ഫാദർ സോണി വർഗീസ് ഫാദർ ജെയ്സ് കെ ജോർജ് എന്നിവർക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്

ആലപ്പുഴ സ്വദേശികളായ ഷിഹറാസ് ഷാജഹാൻ എന്നിവരാണ് പിടിയിലായത് ഇരുവരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്

എന്നാൽ സംഭവത്തിലെ പ്രധാന പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ഇന്നലെ പെയ്ത മഴയിൽ വ്യാപകനാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു

കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയാണ് പാടശേഖരങ്ങളിൽ വെള്ളം കയറി പാണാവള്ളി പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി മേഖല വെള്ളക്കെട്ടിലാണ്

പാൽപ്പാറ മേഖലയിൽ പുഴകൾ കരകവിഞ്ഞു

എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറംപാലക്കാട് വയനാട് ജില്ലകൾക്ക് പൊതുവെയും ചേർത്തല താലൂക്കിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്

വലിയ വാഹനങ്ങൾക്കാണ് നിയന്ത്രണം

ടി സി ബസുകൾക്ക് നിയന്ത്രണമില്ല

സിങ്ങിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം ഇന്നലെ കൊടുങ്ങല്ലൂരെത്തി നാളെ രാവിലെ തീരദേശ പോലീസിനെയും കട്ലോര ജാഗ്രതാ സമിതി അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് മോക് ഡ്രിൽ സംഘടിപ്പിക്കും

കണ്ണൂർ ആയിക്കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട തൊഴിലാളികളാണ് കടലിൽ കുടുങ്ങിയത് ശക്തമായ തിരമാലകളിൽ നിയന്ത്രണം വിട്ട ബോട്ടി ലെ തൊഴിലാളികളെ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ കണ്ണൂർ എടക്കാടിനടുത്ത് കിഴുന്നയിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്

തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് അഞ്ചുതെങ്ങ് മുണ്ടു ചിറയിലെ ബിനുവിനെയാണ് ഇന്നലെ കാണാതായത് മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ശക്തിയായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു തെരച്ചിൽ തുടരുകയാണ്

എസ്

പുതിയ ചിൽ ബസ് ശൃംഖലയെക്കുറിച്ച് കെ എസ് ആർ

സി എം ഡി ടോമിൻ തച്ചങ്കരി ആകാശവാണിയോട്

കേരളത്തിലേക്ക് മീൻ എത്തിക്കുന്ന സംസ്ഥാനങ്ങളിലെ ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാർക്ക് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു

ഇടുക്കി ഉപ്പുതറ് സ്വദേശി വിശ്വനാഥനെയാണ് അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി റിമാന്റ് ചെയ്തത് അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന് വിശ്വനാഥന് വിഗ്രഹത്തിൽ നിന്ന് അഴിച്ചുമാറ്റിയ പൂക്കൾക്കൊപ്പം ക്ഷേത്ര പരിസരത്തെ കുഴിയിൽ നിന്നാണ് സ്വർണ്ണ പതക്കം ലഭിച്ചത്

ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തിയിട്ടിരുന്ന ട്രക്കിലിടിച്ചാണ് അപകടം പരിക്കേറ്റവരെ ഉധംപൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചുമണിക്കാണ് ഉള്ളത്

ക്രൊയേഷ്യയും മുൻ ചാമ്പ്യൻമാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ ഇംഗ്ലണ്ടിനെ തകർത്ത് സെമി കടന്ന ക്രൊയേഷ്യയെ നേരിടുന്നത് കരുത്തൻമാരായ ബെൽജിയത്തെ കീഴടക്കിയ ഫ്രാൻസാണ്